പ്രളയത്തിൽ തകർന്ന വീടുകളുടെ പുനർ നിർമ്മാണം നവം ബർ ഒന്നിന് ആരംഭിക്കും ശബരിമല വിധി പുനപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് എൻഎ സ്എസ് ഉൾപ്പെടെ രണ്ട് സംഘടനകൾ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു

കേരളത്തിലും തമിഴ്നാട്ടിലും തുലാവർഷത്തിന്റെ വരവ് വൈകു മെന്ന് കാലാവസ്ഥാ വകുപ്പ് ൾ ൽ ൾ പ്രളയ പുനരധിവാസ പുനർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ക്രൌഡ് ഫണ്ടിങ്ങ് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദേശിച്ചു ഇതിനാവശ്യമായ ഇന്റർനെറ്റ് പോർട്ടൽ തയാറായതായി തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു തകർന്ന വീടുകളുടെ നിർമ്മാ ണവും അറ്റകുറ്റപണികളും വേഗം പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

പ്രളയത്തിൽ വീട് തകർന്നവരിൽ സ്ഥന്തമായി ഭൂമിയുള്ളവർക്ക് വീട് നിർമ്മിക്കാൻ നാലുലക്ഷം രൂപ അനുവദിക്കുന്നതിന് ജില്ലാ കല ക്ടർമാരെ ചുമതലപ്പെടുത്തി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു അധിക തുക ആവശ്യമെങ്കിൽ ഗുണഭോക്താവ് സ്വയം കണ്ടെത്ത ണം

പതിനേഴായിരത്തോളം വീടുകളാണ് പുനർനിർമ്മിക്കേണ്ടി വരുന്നത് സ്ഥലം ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ ഫ്ളാറ്റുകളും പരിഗണിക്കും പ്രീ ഫാബ്രിക്കേഷൻ പ്രീ എഞ്ചിനിയ റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന നിർമ്മാണ ഏജൻസികളു മായി തിരുവനന്തപുരത്ത് ചർച്ചാ യോഗത്തിൽ സംസാരിക്കുകയാ യിരുന്നു ചീഫ് സെക്രട്ടറി ശബരിമല വിധി പുനപരിശോധിക്കണമെന്നാവശൃപ്പെട്ട് ഇന്നലെ സുപ്രീം കോടതിയിൽ രണ്ട് ഹർജികൾ ഫയൽ ചെയ്തു നായർ സർവീസ് സൊസൈറ്റിയും ദേശീയ അയ്യപ്പ ഭക്തജന വനിതാ കൂട്ടാ യ്മയുമാണ് പുനപരിശോധനാ ഹർജി നൽകിയത്

മറ്റ് ചില സംഘടന കളും ഹർജിയുമായി സൂപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അറി യിച്ചിട്ടുണ്ട്

പന്തളത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എൻഡിഎ യുടെ നേതൃ ത്വത്തിലായിരിക്കും കാൽനട ജാഥ മറ്റ് ജില്ലകളിൽ ഈ ദിവസങ്ങ ളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻ പിള്ള അറിയിച്ചു

ശബരിമലയിലെ സ്ത്രീപ്രവേശന വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് ആർഎസ്എസിനും ബിജെപിക്കും അനുകൂലമാണെന്ന് സിപി ഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ന്യൂഡൽഹിയിൽ പറഞ്ഞു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്തപ്പോൾ സംസ്ഥാന നേതൃത്വം വിധിക്ക് എതിരെയാണ് കേന്ദ്ര കമ്മറ്റി യോഗത്തിന് ശേഷം വാർത്താ സമ്മേ ളനത്തിൽ സംസാരിക്കുകയായിരുന്നു യെച്ചൂരി

ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക യാണ് രണ്ടാമത്തെ ലക്ഷ്യമെന്നും യെച്ചൂരി വൃക്തമാക്കി കണ്ണൂർ വിമാനത്താവളത്തിൽ വൈദ്യുത വാഹനങ്ങൾ ഉപയോ ഗിക്കുന്ന കാര്യത്തിൽ വിമാനക്കമ്പനികളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞു

വിമാനക്കമ്പനി കളുടെ ബസുകളും ജീവനക്കാരെ എത്തിക്കുന്ന വാഹനങ്ങളും വൈദ്യുതി പ്രവർത്തിക്കുന്നതാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ത് സംസ്ഥാന ഗതാഗത വകുപ്പിന്റെ സേഫ് കേരളാ പ്രൊജക്റ്റിലെ ആദ്യ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് മട്ടന്നൂരിൽ തുടങ്ങും

കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സർവ്വീസ് നടത്താൻ ധാര ണയായ വിമാനക്കമ്പനി പ്രതിനിധികളുമായി ഇന്ന് കിയാൽ അധികൃ തർ ചർച്ച നടത്തും കിയാൽ മാനേജിംഗ് ഡയറക്ടറുടെ അധ്യക്ഷ തയിലാണ് ചർച്ചു അതിനിടെ സന്ദർശകർക്ക് നാളെ മുതൽ വിമാന ത്താവളം കാണുന്നതിന് നിയന്ത്രണങ്ങളോടെ പ്രവേശനം അനുവദി ക്കും ഹെൽമെറ്റ് പരിശോധനക്ക് ഓട്ടോമാറ്റിക് ക്യാമറാ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ ഇരിട്ടിയിൽ അറിയിച്ചു ക്യാമറയിൽ മൂന്ന് തവണ പിടിക്കപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കും ഇരിട്ടിയിലും മട്ടന്നൂരിലും ക്യാമറ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവിങ്ങ് ടെസ്റ്റ് സുതാര്യവും കാര്യക്ഷമവുമാ ക്കാൻ നാല് ഓട്ടോമാറ്റഡ് സെർവർ സ്ഥാപിച്ചിട്ടുണ്ട് ഇരിട്ടിയിൽ പുതുതായി അനുവദിച്ച സബ്റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പലിശ നിരക്ക് കുറക്കുന്നതിന്റെ ആനുകൂല്യം വായ്പാ ഗുണ ഭോക്താക്കൾക്ക് നൽകാൻ ബാങ്കുകൾ കാലതാമസം ഉണ്ടാക്കുന്നു വെന്ന പരാതിയിൽ സൂപ്രീം കോടതി റിസർവ് ബാങ്കിന്റെ മറുപടി ആവശ്യപ്പെട്ടു ആറാഴ്ച്ചക്കകം ഹർജിക്കാരെ തീരുമാനം അറിയി ക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദേശം നൽകി കേരളത്തിലും തമിഴ്നാട്ടിലും തുലാവർഷത്തിന്റെ വരവ് വൈകു മെന്ന് കാലാവസ്ഥാ വകുപ്പ് ചെന്നൈയിൽ അറിയിച്ചു അറബിക്കട ലിലെയും ബംഗാൾ ഉൾക്കടലിലേയും ന്യൂനമർദ്ദമാണ് വടക്ക് കിഴ ക്കൻ മൺസൂൺ വൈകാൻ കാരണമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയ റക്ടർ ഡോ

തുലാവർഷം ഇന്നാരംഭിക്കും എന്നായിരുന്നു നേരത്തെ ലഭിച്ച വിവരം

മറ്റ് മേഖലകളിൽ നാളെ കൂടി മീൻപിടിത്തം ഒഴിവാക്കണം കടൽ പൊതുവെ പ്രക്ഷുബ്ധമായിരിക്കും

മുന്നറിയിപ്പിനെ തുടർന്ന് കൂടുതൽ വെള്ളം മ ഴ സംഭരിക്കാവുന്നവിധം പാലക്കാട് ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമീകരിച്ചു മലമ്പുഴ അണക്കെട്ടിന്റെ ്ഷട്ടറുകൾ തുറന്ന് അഞ്ചര അടിയോളം ജലവിതാനം കൂറച്ചു ആളിയാർ പറമ്പിക്കുളം ഡാമുകളിലും ജലനിരപ്പ് സുരക്ഷിതാ വസ്ഥയിൽ ക്രമീകരിച്ചിട്ടുണ്ട് പ്രളയ സാഹചര്യത്തിൽ കർഷകർ ബാങ്കുകളിൽ നിന്നെടുത്ത കാർഷിക വായ്പകൾ പുനക്രമീകരിക്കുമെന്ന് മന്ത്രി വി

പ്രളയദൂരിത മേഖലകളിൽ മാതൃകാപരമായി പ്രവർത്തിച്ച നൈപുണൃ കർമ്മസേനാംഗങ്ങളെ ഹരിത കേരളം മിഷനും വൃവ സായ പരിശീലന വകുപ്പും ഇന്ന് ആദരിക്കും

ട നെല്ല് സംഭരണം ലക്ഷ്യമിട്ട് സഹകരണ മേഖലയിൽ കൂടുതൽ അരിമില്ലുകളും ഗോഡൌണുകളും സ്ഥാപിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു പാലക്കാട്ട് സഹകരണ നെല്ല് ബാങ്കുകളുടെ സംഭ രണം സംബ ന്ധിച്ച ആലോചനായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കൊച്ചി ജലമെട്രോ അടുത്ത വർഷം സെപ്തംബറിൽ ആരംഭി ക്കാൻ കഴിയുമെന്ന് കൊച്ചി മെട്രോ മാനേജിംഗ് ഡിയറക്ടർ മുഹ മ്മദ് ഹനീഷ് അറിയിച്ചു വിവിധ ഏജൻസികളുടെ ക്ലിയറൻസ് ലഭി ക്കുന്ന മുറയ്ക്ക് അന്തിമ അംഗീകാരത്തിനായി പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിക്കും കോതാട് വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട പൊതു സമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയക്രമം തീരുമാനിച്ചു നാളെ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ നാമനിർദേശം നൽകാം മറ്റുന്നാൾ പത്രിക പരിശോധിക്കും

ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ തൃശൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യ ത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് തൃശൂർ പാണഞ്ചേരി പഞ്ചായത്തിൽ ഇന്ന് ബോധവത്ക്കരണ പരിപാടി സംഘ ടിപ്പിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ

അനിത ബോധവൽക്ക രണം ഉദ്ഘാടനം ചെയ്യും വിവിധ പദ്ധതികളേയും സേവനങ്ങ ളേയും കുറിച്ച് വിദഗ്ധർ ക്ലാസെടുക്കും

കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ ഇന്ന് കോഴി ക്കോട് പന്തലായിനി ബ്ലോക്കിൽ പ്രത്യേക ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും മൂടാടി ഗ്രാമപഞ്ചായത്തിൽ കെ ദാസൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും

നിലവിലെ സാഹചരൃം മറികടക്കാൻ ഓർഡിനൻസ് പുറപ്പെടു വിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു ഇന്ന് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ ബിജെപി പകൽ ഹർത്താലിന് ആഹാനം ചെയ്തു ഇന്നലെ ഹരിപ്പാട് ദേവസം ബോർഡ് ഓഫീസ് മാർച്ചിനിടെയുണ്ടായ പൊലീസ് ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഉഹെടെൻഷൻ വൈദ്യുത ലൈൻ സംവിധാനം പ്രവർത്തന സജ്ജമായി

പാലക്കാട് ജില്ലയിൽ പ്ലാസ്റ്റിക് പാക്കറ്റുകളോടുകൂടി പാൽ ചൂടാക്കുന്ന ഹോട്ടലുകൾ ബേക്കറികൾ വഴിയോര കച്ചവടക്കാർ എന്നിവർക്കെതിരെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടപടി കർശനമാക്കി

നവംബർ അവസാനത്തോടെ ആലപ്പുഴ ജില്ലയിൽ അർഹരായ എല്ലാവർക്കും പട്ടയം നൽകുമെന്ന് മന്ത്രി ഇ

ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു അദ്ദേഹം